കുറ്റകരമല്ലെന്ന് സുപ്രീംകോടതി

പ്രവേശനവുമായി ബന്ധിപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് പ്പീശ്ദമായി വാദം

പൂർണമായി പുനസ്ഥാപിച്ചതായി മന്ത്രി മാത്യു ടി തോമസ്

ശശി എം

വച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ബി ജെ

നിർമിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉപ ലോകായുക്ത ഉത്തരവ്

സ്വവർഗരതി കുറ്റമാക്കുന്ന ഐ

വകുപ്പ് യുക്തിരഹിതവും ഏകപക്ഷിയവുമാണെന്ന് ചരിത്ര വിധി പ്രസ്താവത്തിൽ സുപ്രീം കോടതി വൃക്തമാക്കി ഭിന്ന ലൈംഗിക സമൂഹം രാജ്യത്തെ എല്ലാ അവകാശങ്ങൾക്കും അർഹരാണ് വൃത്യസ്ത വൃക്തിത്ത്വങ്ങൾ അംഗീകരിക്കാൻ സമൂഹം പാകപ്പെട്ടതായി ചീഫ് ജസ്റ്റീസ് ദീപക് മിശ്ര അദ്ധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പരമപ്രധാനമെന്നും വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റീസ് വ്യക്തമാക്കി

നാല് കോളേജുകളിലെ പ്രവേശന നടപടി ഇന്നലെ സുപ്രിം കോടതി സ്റ്റേ ചെയ്തിരുന്നു

ശൈലജ സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്ന ശേഷമേ ഗവൺമെന്റ് തീരുമാനമെടുക്കുകയുള്ളുവെന്ന് ആരോഗ്യമന്ത്രി കെ

പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെ മുന്നേറുകയാണെന്നും മന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

കോഴിക്കോട് സുഗന്ധവിള ഗവേഷ്ണ് കേന്ദ്രത്തിൽ നിന്നുള്ള സംഘമാണ് ജില്ലയിലെ ബിവീസ് കേന്ദ്രങ്ങളിൽ പഠനം നടത്തിയത്

ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് തുക കൈമാറിയിട്ടുള്ളത് ട്ടടടടടടടടടടട ഇടുക്കി ഇൻഡ്രോ ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ സ്ഥലങ്ങളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രതിനിധികൾ സന്ദർശനം തുടങ്ങി

ഇതിനുള്ള പദ്ധതിനിർദേശം തയ്യാറാക്ക്ാനായി വൈദ്യുതിബോർഡിലെ ഉത്പാദനവിഭാഗത്തോട്ടൂ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോർഡ് ചെയർമാൻ എൻ

പ്പിള്ള പറഞ്ഞു

ശശി എം

യ്ക്കെതിരായ പരാതി മറച്ച് വച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ബി

ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ

സംസ്ഥാന അദ്ധ്യക്ഷൻ പി

എം പോളിറ്റ് ബൃൂറോ അംഗം ബൃന്ദ കാരാട്ട് അടക്കമുള്ള നേതാക്കളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ശ്രീ ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു

കെ ബഷീർ ഉത്തരവിട്ടു

മന്ത്രി പി തിലോത്തമന്റെ നീർദ്ദേശപ്രകാരമാണ് സിവിൽ സപ്ലൈസ് പുതിയ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചത്

വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

കൊച്ചിൻ കോർപ്പറേഷൻ വടക്കൻ പറവുർ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്

ഇന്നലെ പത്തു പേർ എലിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി

കൊറ്റങ്കര ഉമ്മന്നൂർ പ്പെരിന്റാട് ശൂരനാട് നോർത്ത് എന്നീ മേഖലകളിൽ നിന്ന് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നാലു പേർ ഉൾപ്പടെ പേർക്ക് രോഗബാധയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു

ഗവൺമെന്റ് ഫാമിലെയും മറ്റു സ്വകാര്യ കൃഷിയിടങ്ങളിലെയും നഷ്ടം കണക്കാക്കി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും

ഒരാഴ്ച മുമ്പാണ് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്